സുനിൽകുമാർ

എം സംസ്ഥാനകമ്മിറ്റി

ആദ്യമത്സരം ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ മഴക്കെടുതി വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി കിരൺ റിജ്ജു ടൂറിസം സഹമന്ത്രി അൽഫോൻസ് കണ്ണന്താനം എന്നിവരുടെ നേതൃത്വ ത്തിൽ കേന്ദ്രസംഘം കേരളത്തിലെത്തി

ദുരന്തം വിലയിരുത്തിയശേഷം ബാക്കി തുക അനു വദിക്കു മെന്നും അദ്ദേഹം അറിയിച്ചു മാനദണ്ഡമനുസരിച്ച് നഷ്ടപരിഹാരം നൽകുമെന്ന് കിരൺ റിജ്ജു പറഞ്ഞു കേരളത്തിന്റെ കാര്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കു മെന്നും അദ്ദേഹം വൃക്തമാക്കി മഴക്കെടുതി കേന്ദ്രവും സംസ്ഥാനവും ഒറ്റക്കെട്ടായി നേരിടണമെന്നും സംസ്ഥാനവുമായി അഭിപ്രായവൃത്യാസ മില്ലെന്നും കിരൺ റിജ്ജു അറിയിച്ചു കൊച്ചിയിൽ പ്രാഥമിക കൂടിയാലാ ചനയ്ക്കുശേഷം സംഘം ആലപ്പുഴയിലേക്കുപോയി വെള്ളപ്പൊക്കം രൂക്ഷമായി തുടരുന്ന മേഖലകൾ മന്ത്രി വി

സുനിൽകുമാറിനൊപ്പം നേരിൽകണ്ട ശേഷം അവർ കോട്ടയം ജില്ലയിലേക്ക് പോകും വൈകീട്ട് എറണാകുളം ജില്ലയിലെ ചെല്ലാനവും മറ്റ് വെള്ളപ്പൊക്ക ബാധിത പ്രദേ ശങ്ങളും സന്ദർശിക്കും രാത്രി ഡൽഹിയ്ക്കു തിരിക്കും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി അംഗം ആർ കെ ജെയിൻ കേന്ദ്ര ആഭ്യന്തരവകുപ്പ് ജോയിന്റ് സെക്രട്ടറി സഞ്ജീവ്കുമാർ ജിൻഡാൽ ദേശീയ ദുരന്ത നിവാ രണ സേന ഐ ജി രവി ജോസഫ് ലോക്കു എന്നിവരാണ് സംഘാംഗ ങ്ങൾ കാലവർഷ കെടുതി നേരിടാൻ ആയിരംകോടിയിലേറെ രൂപയുടെ പാക്കേജ് വേണമെന്ന് സംസ്ഥാനം കേന്ദ്രത്തോട് ആവശ്യപ്പെടുമെന്ന് മന്ത്രി വി

പതിനാ ലായിരം ഹെക്ടറിൽ നെൽകൃഷിയ്ക്ക് നാശം സംഭവിച്ചിട്ടുണ്ട് കാല വർഷത്തിന്റെ തുടക്കത്തിൽ ഇത്രമാത്രംനഷ്ടം മുൻപുണ്ടായിട്ടില്ലെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു സംസ്ഥാനത്തെ കാലാവസ്ഥ കേന്ദ്രം കണക്കി ലെടുക്കണമെന്നും നഷ്ടപരിഹാര മാനദണ്ഡങ്ങളിൽ കാലോചിത മാറ്റം വരുത്തണമെന്നും സുനിൽകുമാർ പറഞ്ഞു മഴക്കെടുതിയിൽ കാണാതായ രണ്ടുപേരുടെ മൃതദേഹങ്ങൾ ഇന്ന് ലഭിച്ചു തിരുവല്ലയ്ക്ക് സമീപം കവിയൂരിൽ വെള്ളക്കെട്ടിൽ കാണാ തായ വിദ്യാർത്ഥി കോട്ടൂർ പുത്തൻ വളപ്പിൽ ബിനിയുടെ മൃതദേഹം രാവിലെ കണ്ടെത്തി

ടി ഐ വിദ്യാർത്ഥിയായ ബിനിയെ ഇന്നലെ ഉച്ചയ്ക്ക് പാടത്തെ വെള്ളക്കെട്ടിൽ കുളിക്കാനിറങ്ങിയതിനെതുടർന്ന് കാണാതാവുകയായിരുന്നു പിറവം ഉഴവൂർ തോട്ടിൽ ഒഴുക്കിൽപെട്ട് കാണാ തായ ശങ്കരൻനായരുടെ മൃതദേഹവും കണ്ടെത്തി

കണ്ണൂർ ജില്ലയിൽ കാലവർഷകെടുതിയിൽ തകർന്ന വീടുകളുടെ നഷ്ടം രണ്ട് ദിവസത്തിനകം കണക്കാക്കി വില്ലേജ് ഓഫീസർമാർക്ക് സമർപ്പിക്കാൻ തദ്ദേശ സ്ഥാപന എഞ്ചിനീയർമാർക്കും ഓഫീസർമാർക്കും കലക്ടർ മീർ മുഹമ്മദാലി നിർദ്ദേശം നൽകി

പ്രളയം നേരിടുന്നതിൽ സംസ്ഥാന ഗവൺമെന്റ് പൂർണ്ണ പരാജയമെന്ന് പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി ആലപ്പുഴയിൽ മൂന്ന് മന്ത്രിമാർ ഉണ്ടായിരുന്നിട്ടും പ്രളയബാധിതപ്രദേശങ്ങൾ അവർ സന്ദർശി ച്ചില്ലെന്നും എം

എ മാരും സന്ദർശനം നടത്തിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു മഴക്കെടുതി പ്രദേശങ്ങൾ സന്ദർശിച്ചശേഷം സംസാരിക്കുകയാ യിരുന്നു ചെന്നിത്തല അതേസമയം ദുരന്തബാധിതപ്രദേശങ്ങൾ സന്ദർശി ച്ചില്ലെന്ന രമേശ് ചെന്നിത്തലയുടെ ആരോപണത്തിൽ കഴമ്പില്ലെന്ന് മന്ത്രി ജി സുധാകരൻ ആലപ്പുഴയിൽ പ്രതികരിച്ചു ഡൽഹിയിൽ പോകേണ്ടി വന്നതുകൊണ്ടും പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഉണ്ടായിരുന്നതുകൊണ്ടുമാണ് പ്രദേശങ്ങൾ സന്ദർശിക്കാൻ കഴിയാതിരുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി ദുരിതാശ്ചാസപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ടെന്നും മന്ത്രി പറ ഞ്ഞു യുഡിഎഫ് ഗവൺമെന്റിനേക്കാൾ നല്ലരീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ടെന്നും സുധാകരൻ അറിയിച്ചു ജില്ലയിൽ കാലവർഷം ശക്തമായ സാഹചര്യത്തിൽ പകർച്ചവ്യാധി കൾ പിടികൂടാൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണ മെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ നിർദ്ദേശിച്ചു കുടിവെള്ള സ്രോത സ്സുകൾ മലിനമാകാൻ സാധൃതകൂടുതലുള്ളതിനാൽ ജലജനൃരോഗ ങ്ങൾക്കെതിരെ പ്രത്യേക മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ഡി എം ഒ അറിയിച്ചു

എം സംസ്ഥാനക മ്മിറ്റി കുറ്റപ്പെടുത്തി സംസ്ഥാനം അടിയന്തിര പ്രാധാന്യത്തോടെ ശ്രദ്ധ യിൽപെടുത്തിയ കാര്യങ്ങളോട് കടുത്ത അവഗണനയാണ് പ്രധാനമന്ത്രി പുലർത്തിയതെന്ന് സംസ്ഥാനകമ്മിറ്റി പ്രമേയത്തിൽ കുറ്റപ്പെടുത്തി

ഐ യ്ക്കെതിരെ നടത്തേണ്ട പ്രചാരണപരിപാ ടികൾ യോഗം ചർച്ച ചെയ്യും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്ക ങ്ങളും മുന്നണി വിപുലീകരണവും ചർച്ചയാവും കേരളത്തിൽനിന്ന്പോയ സർവ്വകക്ഷിസംഘത്തോട് ജന്മി കുടിയാന്മാരോട് കാണിക്കുന്ന സമീപന മാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായതെന്ന് കെ

ഹസ്സനും കുറ്റപ്പെടുത്തി പ്രധാനമന്ത്രി കാണിച്ചത് ധിക്കാ രമാണെന്നും അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉത്തർപ്രദേശിലെ ഷാജഹാൻപൂർ ജില്ലയിൽ കർഷകറാലിയെ അഭിസംബോധന ചെയ്യും മൂന്ന് ആഴ്ചക്കിടെ അഞ്ചാംതവണയാണ് അദ്ദേഹം ഉത്തർപ്രദേശിലെത്തുന്നത് കർഷക ക്ഷേമം മുൻനിർത്തി ചില പ്രധാന പ്രഖ്യാപനങ്ങൾ നരേന്ദ്രമോദി നട ത്തിയേക്കുമെന്ന് ബിജെപി കേന്ദ്രങ്ങൾ സൂചിപ്പിച്ചു

കൌൺസിൽ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ

പരോക്ഷ നികുതി സമ്പ്രദായം ലഘൂകരി ക്കുന്നതിന്റെ ഭാഗമായാണ് സാനിട്ടറി നാപ്കിനുകൾ ഹാന്റ് ലൂം കരകൌശലവസ്തുക്കൾ തുടങ്ങിയവയുടെ നികുതി നിരക്ക് കുറയ്ക്കുന്ന ത്

ടിയുമായി ബന്ധപ്പെട്ട നിയമങ്ങളുടെ പരിഷ്കരണവും യോഗം ചർച്ചചെയ്യും അവിശ്വാസപ്രമേയ ചർച്ചയിൽ ലോക്സഭയിൽ കോൺഗ്രസ് അധ്യ ക്ഷൻ രാഹുൽഗാന്ധിയുടെ പ്രകടനത്തെ പ്രകീർത്തിച്ച് ശിവസേന മുഖ പത്രം സാമ്ന അവിശ്വാസപ്രമേയത്തെ അതിജീവിക്കാൻ മോദി ഗവൺമെന്റിന് കഴിഞ്ഞെങ്കിലും ഹൃദയംകൊണ്ട് വിജയിച്ചത് രാഹുൽഗാ ന്ധിയായിരുന്നുവെന്ന് സാമ്ന അഭിപ്രായപ്പെട്ടു പ്രതിപക്ഷത്തിന്റെ ശബ്ദ മാകാൻ രാഹുലിന് കഴിഞ്ഞെന്നും പത്രം പറഞ്ഞു അതേസമയം അവി ശ്വാസപ്രമേയത്തിൽ കേന്ദ്രഗവൺമെന്റിനെ പിന്തുണയ്ക്കാമെന്ന് ഉറപ്പു നൽകിയിരുന്നില്ലെന്ന് ശിവസേനകേന്ദ്രങ്ങൾ മുംബൈയിൽ വെളിപ്പെടു ബിജെപി അധ്യക്ഷൻ അമിത്ഷാ നിരവധി തവണ ശിവസേന ത്തി നേതാവ് ഉദ്ധവ്താക്കറെ വിളിച്ചിരുന്നുവെന്നും എന്നാൽ അദ്ദേഹം സംസാ രിക്കുകയോ ഉറപ്പ് നൽകുകയോ ചെയ്തിരുന്നില്ലെന്നും കേന്ദ്രങ്ങൾ പറ ഞ്ഞു അതിനിടെ ചീഫ്വിപ്പ് സ്ഥാനത്തുനിന്ന് ചന്ദ്രകാന്ത് ഖൈറയെ നീക്കി അവിശ്വാസവോട്ടെടുപ്പിൽ ബിജെപിയ്ക്ക് അനുകൂലമായി പിന്തുണ അഭ്യർത്ഥിച്ച് പാർട്ടി എം

മാർക്ക് കത്തെഴുതിയതിനാണ് നട പടി രാജസ്ഥാനിലെ ആൾവാർ ജില്ലയിൽ പശുകടത്തുകാരനെന്നാരോപിച്ച് ജനക്കൂട്ടം യുവാവിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തി

രണ്ടുപശുക്കളെ സ്വന്തം ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകുകയാ യിരുന്ന അക്ബർഖാനെയും കൂടെയുണ്ടായിരുന്ന ആളിനെയും പശുകട ത്തുകാരെന്നുകരുതി ജനക്കൂട്ടം ആക്രമിക്കുകയായിരുന്നുവെന്ന് പൊലീസ് പറഞ്ഞു ആൾക്കൂട്ടത്തിനെതിരെ കൊലപാതകത്തിന് കേസെടു ത്തിട്ടുണ്ട് ഇരുചക്ര വാഹനങ്ങൾക്ക് വില്പന് വേളയിൽതന്നെ അഞ്ച് വർഷ ത്തെ തേർഡ് പാർട്ടി ഇൻഷൂറൻസ് നിയമപരമായി നിർബന്ധമാക്കണ മെന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചു നാലുചക്ര വാഹനങ്ങൾ മൂന്നുവർഷ ത്തേക്കും തേർഡ് പാർട്ടി ഇൻഷൂറൻസ് പോളിസി എടുത്തിരിക്കണം നില വിൽ ഒരുവർഷമാണ് തേർഡ് പാർട്ടി ഇൻഷൂറൻസിന്റെ കാലാവധി

വനിതാ ഹോക്കി ലോകകപ്പ് ഇന്ന് ലണ്ടനിൽ ആരംഭിക്കും ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലാണ് ആദ്യമത്സരം

ഹോള ണ്ടാണ് നിലവിലെ ചാമ്പ്യന്മാർ ട കേരളത്തിന് അനുവദിച്ച എയിംസ് കാസർകോട് ജില്ലയിൽ സ്ഥാപി ക്കണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരത്തെത്തുന്ന ജില്ലയിലെ സർവ്വക ക്ഷിസംഘവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കൂടിക്കാഴ്ച നടത്തും

കരുണാകരൻ എം

യും എം

നെല്ലിക്കുന്ന് കെ കുഞ്ഞിരാമൻ എം രാജഗോപാലൻ ജില്ലാപഞ്ചായത്ത് പ്രസിഡണ്ട് എ

ബഷീർ തുട ങ്ങിയവർ സംഘത്തിലുണ്ട് തൊഴിൽ നൈപുണ്യ പരിശീലനത്തിനായി സംസ്ഥാന ഗവ കൊല്ലം ചവറയിൽ ആരംഭിക്കുന്ന അന്താരാഷ്ട്ര പഠനകേന്ദ്രം മറ്റന്നാൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജ്യത്തിന് സമർപ്പിക്കും

നിർമ്മാണ അടിസ്ഥാന സൌകര്യവികസന മേഖലകളിൽ ദേശീയ അന്തർദേശീയ തലത്തിൽ തൊഴിൽ നേടാൻ സംസ്ഥാനത്തെ അഭ്യസ്തവിദ്യരായ തൊഴിൽ നേടാ നായി അന്വേഷകരെ പ്രാപ്തരാക്കാൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ച്ചർ ആന്റ് കൺസ്ട്രക്ഷന് സാധിക്കും

കണ്ണൂരിൽ നടക്കുന്ന സംസ്ഥാന ഐ ടി ഐ കലോത്സവത്തിൽ കണ്ണൂർ ജനറൽ ഐ ടി ഐ മുന്നിൽ

ഐ രണ്ടാംസ്ഥാ നത്തും മലമ്പുഴ ഐ

ഐ മൂന്നാംസ്ഥാനത്തുമാണ് കലോത്സവം ഇന്ന് സമാപിക്കും വൈകീട്ട് നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി രാമച ന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും മൊബൈലിൽ സംസാരിച്ച് ബസോടിച്ച കെ

സി ഡ്രൈവ റുടെ ലൈസൻസ് വാഹനവകുപ്പ് സസ്പെൻഡ് ചെയ്തു കോഴിക്കോ ട്ട്നിന്ന് നെടുമ്പാശ്ശേരിയിലേക്കുപോയ കെ എസ്

ലോഫ്ളോർ ബസ് ഡ്രൈവർ അജയ്കുമാറിന്റെ ലൈസൻസാണ് സസ്പെൻഡ് ചെയ്ത ഇയാൾ മൊബൈലിൽ സംസാരിച്ച് ബസോടിക്കുന്ന രംഗം യാത്ര ത് ക്കാരൻ മൊബൈൽ കൃാമറയിൽ പകർത്തി ഗതാഗത വകുപ്പിന്റെ വാട്സാപ്പ് നമ്പരിലേക്ക് അയച്ചതിനെതുടർന്നാണ് നടപടി